യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു ബി ജെ പിക്കെതിരായ ജനവിധിയെ എളിമയോടെ അംഗീകരിക്കുന്നതായും പ്രധാനമന്ത്രി അറിയിച്ചു ദേശീയ തലത്തിൽ ഭരണമാറ്റത്തിന് സമയമായെന്ന സൂചനയാണ് തെര ഞ്ഞെടുപ്പ് വിജയമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും തെലങ്കാനയിലും ഗവൺമെന്റ് രൂപീ കരണ ശ്രമങ്ങൾ പുരോഗമിക്കുന്നു മധ്യപ്രദേശിൽ കോൺഗ്രസ് അവകാ ശമുന്നയിച്ചു റിസർവ് ബാങ്ക് ഗവർണറായി മുൻ ധനകാര്യ സെക്രട്ടറി ശക്തികാന്ത ദാസിനെ നിയമിച്ചു കൊച്ചി രാജ്യാന്തരവിമാനത്താവളത്തിന്റെ നവീകരിച്ച ടെർമിനലും

ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു ബി ജെ പിക്കെതിരായ ജനവിധിയെ എളിമയോടെ അംഗീകരിക്കുന്നതായി അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു തെലങ്കാനയിലെ ഉജ്ജല വിജയത്തിൽ മുഖ്യമന്ത്രി കെ ചന്ദ്രശേ ഖരറാവുവിനെയും മിസോറാമിൽ അധികാരത്തിലെത്തിയ മിസോ നാഷ ണൽ ഫ്രണ്ടിനെയും പ്രധാനമന്ത്രി അനുമോദനം അറിയിച്ചു ജയ പരാജ യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണെന്നും അഞ്ചുസംസ്ഥാനങ്ങളിലെ തെര ഞ്ഞെടുപ്പ് ഫലം ജനങ്ങളെ കൂടുതലായി സേവിക്കാനും രാജ്യത്തിന്റെ വികസനത്തിന് ഇനിയും ശക്തമായി പ്രവർത്തിക്കാനും അവസരമൊരുക്കു മെന്ന് നരേന്ദ്രമോദി പറഞ്ഞു ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായും തെല ങ്കാന നേതാവ് കെ ചന്ദ്രശേഖരറാവുവിനെ അഭിനന്ദിച്ചു

തെരഞ്ഞെടുപ്പുവിജയം ദേശീയതലത്തിൽ മാറ്റത്തിന് സമയമായെന്ന സൂച നയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി അഭിപ്രായപ്പെട്ടു

കഴിഞ്ഞ ലോക്സഭാ തെര ഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയ നരേന്ദ്രമോദി രാജ്യത്തിന്റെ ഹൃദയ സ്പന്ദനം ശ്രദ്ധിക്കാൻ കൂട്ടാക്കിയില്ലെന്ന് രാഹൂൽഗാന്ധി ന്യൂഡൽഹിയിൽ കുറ്റപ്പെടുത്തി എന്തൊക്കെ ചെയ്യാൻ പാടില്ലെന്ന പാഠമാണ് ഈ തെര ഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി തന്നെ പഠിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു

രൂപീകരണ ശ്രമങ്ങൾ തുടങ്ങി ഛത്തീസ്ഗഡിൽ മുഖ്യമന്ത്രിയെ തീരുമാ നിക്കാൻ നിയമസഭാകക്ഷിയോഗം ഇന്ന് ചേരും ഇതിനുശേഷം സാധ്യതാ പട്ടിക ഹൈക്കമാന്റിന് നൽകും

തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് മുഖ്യമന്ത്രി രമൺസിംഗ് ഗവർണർക്ക് ഇന്നലെതന്നെ രാജിക്കത്ത് കൈമാറി രാജസ്ഥാനിലും ഇന്ന് നിയമസഭാപാർട്ടി യോഗം ചേർന്ന് കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കും എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ

വേണുഗോപാൽ യോഗത്തിൽ നിരീക്ഷകനായി പങ്കെടുക്കും

മുഖ്യമന്ത്രി വസുന്ധരാരാജെ ഗവർണർക്ക് രാജി സമർപ്പിച്ചു കക്ഷിരഹി തരുടെയും മറ്റ് ചില കക്ഷികളുടെയും പിന്തുണ ഉണ്ടെന്ന് പാർട്ടി അറിയി ച്ചു തെലങ്കാനയിൽ ഇന്ന് ടി ആർ എസ് നിയമസഭാകക്ഷിയോഗം ചേർന്ന് കെ ചന്ദ്രശേഖരറാവുവിനെ വീണ്ടും നേതാവായി തെരഞ്ഞെടുക്കും സത്യ പ്രതിജ്ഞാ തിയ്യതി അതിനുശേഷം തീരുമാനിക്കും

എസ് പിയുടെയും ബി എസ് പിയുടെയും പിന്തുണ ഉണ്ടെന്ന് കോൺഗ്രസ് ഗവർണറെ അറിയിച്ചു

കോൺഗ്രസ് മൂന്നിടത്തും ബി ജെ പി ഒരിടത്തും ലീഡ് ചെയ്യുന്നു തെരഞ്ഞെടുപ്പുഫലം പൂർണ്ണമായി വന്നശേഷമേ ഗവൺമെന്റ് രൂപീകരണത്തിന് പാർട്ടികളെ ക്ഷണിക്കൂവെന്ന് ഗവർണർ ആനന്ദി ബെൻ പട്ടേൽ അറിയിച്ചതായാണ് റിപ്പോർട്ട് മിസോറാമിൽ മിസോ നാഷണൽ ഫ്രണ്ടും ഗ്നവൺമെന്റ് രൂപീ കരണത്തിന് നടപടി ആരംഭിച്ചു

കോൺഗ്രസിന് അഞ്ചു സീറ്റ് മാത്രമാണ് നേടാനായത് മുൻ ധനകാര്യ സെക്രട്ടറി ശക്തികാന്ത ദാസിനെ റിസർവ് ബാങ്ക് ഗവർണറായി നിയമിച്ചു നിലവിൽ ധനകാരൃ കമ്മീഷൻ അംഗമാണ് അദ്ദേ ഹം

ഉർജ്ജിത് പട്ടേൽ അപ്രതീ ക്ഷിതമായി രാജിവെച്ചതിനെ തുടർന്നാണ് ശക്തികാന്ത ദാസിനെ ഗവർണ റായി നിയമിച്ചത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് അനുകൂലമായ ജനവിധി ഉൾക്കൊണ്ട് സി പി ഐ എം അടക്കം ഇടതുപാർട്ടികൾ അന്ധ മായ കോൺഗ്രസ് വിരോധം ഉപേക്ഷിക്കണമെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് അഭിപ്രായപ്പെട്ടു ആർ എസ് എസ് സംഘ്പരിവാർ ശക്തികളെ പരാജയപ്പെടുത്താൻ ഇടതുകക്ഷികൾക്കുമാ ത്രമായി കഴിയില്ലെന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയെ ശക്തിപ്പെടുത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങളാണ് കേര ളത്തിൽ നടക്കുന്നതെന്നും കൊടിക്കുന്നിൽ പ്രസ്താവനയിൽ കുറ്റപ്പെടു ത്തി

ഇതോടെ നാലായിരത്തോളം ആഭ്യന്തര യാത്രക്കാരെ ഒരേസമയം ഉൾക്കൊള്ളാൻ കഴിയും

പൂനെയിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ പൂനെ സിറ്റി മറുപടിയില്ലാത്ത രണ്ടു ഗോളിന് എഫ് സി ഗോവയെ തോൽപിച്ചു സീസ ണിൽ പൂനെയുടെ മൂന്നാം ജയമാണിത്

കിരീടം കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് തുടർച്ചയായി മൂന്നാം തവണ യാണ് കാലിക്കറ്റ് കിരീടം സ്വന്തമാക്കുന്നത് പോണ്ടിച്ചേരിയിലെ അവസാന റൌണ്ട് മത്സരത്തിൽ കാലിക്കറ്റും കേരളയും ഏഴ് പോയിന്റുമായി തുല്യനി ലയിലായിരുന്നു ടോസിലൂടെയാണ് കാലിക്കറ്റ് ചാമ്പ്യന്മാരായത് പൊന്നാനി വാണിജൃ തുറമുഖ നിർമ്മാണത്തിന് പുതിയ പദ്ധതി തയാറാക്കാൻ തീരുമാനമായി തുറമുഖ നിർമ്മാണത്തിന് കരാറെടുത്ത മലബാർ പോർട്ട്സിനെ ഒഴിവാക്കാൻ നിയമനടപടിയെടുക്കാനും തിരുവന ന്തപുരത്ത് സ്പീക്കറുടെ ചേംബറിൽ ചേർന്ന യോഗം തീരുമാനിച്ചു മുഖ്യ മന്ത്രിയുടെയും തുറമുഖ മന്ത്രിയുടെയും സാന്നിധ്യത്തിലായിരുന്നു യോഗം ് ശബരിമല വിഷയത്തിൽ യുഡിഎഫ് എംഎൽഎമാർ നിയമസ ഭയ്ക്കുമുന്നിൽ നടത്തുന്ന സത്യഗ്രഹവും ബിജെപി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന നിരാഹാര സമരവും പത്താം ദിവസത്തിലേക്ക് കടന്നു എംഎൽമാരായ എൻ ജയരാജ് വിഎസ് ശിവകുമാർ പാറയ്ക്കൽ അബ ദുല്ല എന്നിവരാണ് സത്യഗ്രഹം നടത്തുന്നത് ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് സി കെ പത്മനാഭനാണ് ശബരിമലയിൽ നിരോധനാജ്ഞ പിൻ വലിക്കണമെന്നത് ഉൾപ്പെടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിരാഹാരമിരിക്കുന്നത്

ശബരിമലയിൽ വൻ തീർഥാടന തിരക്ക് നെയ്യഭിഷേകത്തിനും വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇന്ന് പതിവ് പൂജകൾക്ക് പുറമേ വിശേഷാൽ പൂജകളായ ഉദയാസ്തമന പൂജ സഹസ്ര കലശാഭിഷേകം കളഭാഭിഷേകം എന്നിവ നടക്കും ശബരിമലയിൽ സുരക്ഷക്കായി മൂന്നാം ഘട്ട പോലീസ് സേന മറ്റന്നാൾ ചുമതലയേൽക്കും പമ്പയിലെയും സന്നിധാനത്തെയും സുരക്ഷാചുമതല ഐ ജി ശ്രീജിത്ത് ഏറ്റെടുക്കും

കോട്ടയത്തെയും ബെങ്കലുരൂവിലെയും ചില ഭക്തരാണ് സ്വർണ കതക് വഴിപാടായി സമർപ്പിക്കുന്നത്

ന്തര മഹാഭാരതമേള സംഘടിപ്പിക്കും തുഞ്ചൻ സ്മാരക ട്രസ്റ്റാണ് മേള സംഘടിപ്പിക്കുന്നത് രാജ്യാന്തര അക്കാദമിക് വിദഗ്ദ്ധർ മഹാഭാരതവുമായി ബന്ധപ്പെട്ട ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും

പോട്ട് പൌരി ഇന്ത്യൻ വിഭാ ഗത്തിലെ റിമാദാസിന്റെ ബുൾബുൾ കാൻ സിംഗ് ആണ് ഇന്നത്തെ ആദ്യ ചിത്രം പ്രേഷകരുടെ മികച്ച ചിത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ വോട്ടിംഗും ഇ ന്ന് തുടങ്ങും

് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരുവനന്തപുരത്തെ കെ എഫ് ബി ആസ്ഥാന മന്ദിരത്തിൽ സ്ഥാപിച്ച കമ്പ്യൂട്ടറൈസ്ഡ് ബ്രെയിൽ പ്രസ് ഇന്ന് മന്ത്രി കെ

ശൈലജ ഉദ്ഘാടനം ചെയ്യും

ങ്ങളിൽ ആഭ്യന്തര പരാതി പരിഹാര സെൽ നിർബന്ധമായി ഏർപ്പെടുത്ത ണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ നിർദ്ദേശിച്ചു കൊല്ലത്ത് സംഘടി പ്പിച്ച അദാലത്തിലാണ് നിർദ്ദേശം

കൊല്ലം തെന്മല കോട്ടവാസൽ ചെക്ക് പോസ്റ്റുകളിൽ മൃഗസം രക്ഷണവകുപ്പ് തുടർച്ചയായ സാംക്രമിക രോഗ പരിശോധന നടത്താൻ തീരുമാനിച്ചു കൊല്ലം ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിൽ കുളമ്പുരോഗ ബാധ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി

കലക്ടറേറ്റ് മൈതാനിയിൽ വൈകിട്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും